ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധി നിർണാ യകമാവും ബിജെപിയിലേക്ക് ആളെ കൂട്ടുന്ന ഏജൻസിയായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുതിരാനിലെ ഇരട്ടതുരങ്കത്തിന്റെയും മണ്ണൂത്തി വടക്കാ ഞ്ചേരി ദേശീയപാതയുടെയ്യും നിർമാണം ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരി വിളിച്ച അടിയന്തരയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ

മുൻമന്ത്രി ദാമോദ്ദരൻ കാളാശ്ശേരി അന്തരിച്ചു ലോകക്പ്പ് കിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ട് ന്യൂസിലാന്റ് പോരാട്ടം മറ്റന്നാൾ

നേരത്തെ നൽകിയ രാജി സ്വീകരിക്കാത്ത സ്പീക്കറുടെ നിലപാട് ചോദ്യം ചെയ്ത് ഹർജി നൽകിയ വിമത എംഎൽഎ മാർക്കു വേണ്ടി മുകൂൾ റോത്തഗിയാണ് ഹാജരായത് കോടതി ഉത്തരവ് അനുസരിക്കാത്ത സ്പീക്കർക്കെതിരെ കോടതി യലക്ഷ്യ നോട്ടീസ് അയക്കണമെന്ന് റോത്തഗി ആവശ്യപ്പെട്ടു ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗൊയ് അധ്യക്ഷ നായ ബെഞ്ച് പുറപ്പെടുവിക്കുന്ന വിധി നിർണായകമാവും എംഎൽഎമാരുടെ രാജിക്കാരൃത്തിൽ തന്റെ നിലപാട് സ്പീക്കർ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നതിനിടെ കർണാടക നിയമസ ഭയുടെ നിർണായക വർഷകാല സമ്മേളനം ആരംഭിച്ചു അന്തരിച്ച പ്രമുഖർക്ക് ചരമോപചാരം അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഭൂരിപക്ഷമില്ലാത്ത കുമാരസ്വാമി ഗവൺമെന്റ് നിയമസഭാ സമ്മേ ളനം വിളിച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബിജെപി കുറ്റപ്പെ ടുത്തി അതിനിടെ രാജി സമർപ്പിച്ച അഞ്ച് വിമത എം എൽഎമാരിൽ മൂന്ന് പേരോട് നേരിട്ട് കാണാൻ സ്പീക്കർ കെ ആർ രമേശ്കു മാർ നിർദേശിച്ചു വൈകിട്ട് നാലു മണിക്ക് സ്പ്പീക്കറുടെ ചേംമ്പ റിലെത്താനാണ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗോവയിൽ പ്രമോദ് സാവന്ത് നേതൃത്വം നൽകുന്ന ബിജെപി മന്ത്രി സഭ നാളെ പുന സം ഘ ടി പ്പിക്കും കഴിഞ്ഞ ദി വസം കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന് പത്ത് എംഎൽഎമാരിൽ മൂന്ന് പേർ പുതിയ മന്ത്രിസഭയിലുണ്ടാവുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ പനാജിയിൽ അറിയിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ മൈക്കൽ ലോബോയും മന്ത്രിയാകും പുതിയ അംഗങ്ങളെ ഉൾപ്പെടത്തുന്നതിന് നാല്പേരെ മന്ത്രിസ ഭയിൽ നിന്ന് ഒഴിവാക്കുമെന്നും കേന്ദ്രങ്ങൾ അറിയിച്ചു ഇവരിൽ ഏറെയും സഖ്യക്ക്ഷികളിലെ മന്ത്രിമാരായിരിക്കുമെന്ന് അവർ വെളിപ്പെടുത്തി റെയിൽവെ മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥന ചർച്ചക്ക് മന്ത്രി പീയുഷ് ഗോയൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് ലോക്സഭയിൽ മറുപടി നൽകും തുടർന്ന് ധനാഭ്യർത്ഥന വോട്ടിനിടും ഇന്നലെ ഉച്ചക ഴിഞ്ഞ് ആരംഭിച്ച ചർച്ച അർധരാത്രിയിലാണ് പൂർത്തിയായത് നൂറോളം അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു

റെയിൽവെയുടെ ആസ്തി മോദി ഗവൺമെന്റ് വിൽക്കാൻ ശ്രമി ക്കുകയാണെന്നും റെയിൽവെയെ സ്വകാര്യ വൽക്കരിക്കുകയാ ണെന്നും പ്രതിപക്ഷം ചർച്ചയിൽ കുറ്റപ്പെടുത്തി

പൊതു സ്വകാരൃ പങ്കാളിത്തം മാത്രമാണ് റെയിൽവെയെ രക്ഷി ക്കാൻ മാർഗ്ഗമെന്ന് ബിജെപിയിലെ ഗോപാൽഷെട്ടി പറഞ്ഞു ബിജെപിയിലേക്ക് ആളെ കൂട്ടുന്ന ഏജൻസിയായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് താൻ പറ്റഞ്ഞത് സത്യ മായെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരുത്ത് പിഎസ് സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റിന്റേതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തെ സഹാ യിക്കുന്നതിൽ കേന്ദ്രത്തിന് നിഷേധാത്മക നിലപാടാണെന്ന് അദ്ദേഹം ആരോപിച്ചു കേരളത്തിന് ലഭിക്കേണ്ട പല സഹായ ങ്ങളും കേന്ദ്രം നൽകൂന്നില്ലെന്നും ഈ അവഗണന പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ ബജറ്റിലും കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ലെന്ന് പിണറായി ആരോപിച്ചു പ്രളയാന്ന്തര കേരളത്തിന്റെ പുനരുദ്ധാരണം ലക്ഷ്യമിട്ട് തിങ്ക ളാഴ്ച തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര കോൺക്ലേവ് സംഘടി പ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ദേശീയ രാജ്യാന്തര ധനകാര്യ ഏജൻസികളുടെ വായ്പകളും സാമ്പ ത്തിക സാങ്കേതിക സഹായങ്ങളും ലഭ്യമാക്കുകയാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായ കോൺക്ലേവിന്റെ ലക്ഷ്യം ലോകബാങ്ക് എഡിബി ഫ്രഞ്ച് ഡവലപ്മെന്റ് ഏജൻസി തുടങ്ങി യവ പങ്കെടുക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു കുതിരാനിലെ ഇരട്ട തുരങ്കം മണ്ണൂത്തി വടക്കാഞ്ചേരി ദേശീയ പാത എന്നിവയുടെ നിർമാണം നീണ്ടുപോകുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി നിതിൻഗഡ്ഗരി വിളിച്ച അടിയന്തര യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും

ദൌതൃത്തിന്റെ അവസാനഘട്ട ജോലി കൾ പൂർത്തീകരിക്കുകയാണ്ണെന്ന് ഐഎസ്ആർഒ അധികൃതർ അറിയിച്ചു ചന്ദ്രനെ വല് ്വെയ്ക്കുന്ന ഓർബിറ്റൽ ചന്ദ്രോപരിതലത്തി ലേക്ക് ഇറങ്ങുന്നു ലാന്റർ പരൃവേക്ഷണം നടത്തുന്ന റോവർ എന്നിവ ഉൾപ്പെടുന്നതാണ് പേടകം

ദൌത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ ദക്ഷിണദ്രുവത്തിൽ പര്യവേക്ഷണ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമാകും ഇന്ത്യ

എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം

പിഎസ് സി അപേ ക്ഷാഫോം പട്ടികജാതിക്കാർക്ക് സൌജനൃമാക്കിയതും തിരുവന ന്തപുരം വെള്ളയമ്പലത്ത് അയ്യങ്കാളി പ്രതിമ സ്ഥാപിച്ചതും കാളാ ശ്ശേരി മന്ത്രിയായിരിക്കെയാണ്

നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ വിദേശനാണ്യ വിനിമയ തട്ടിപ്പ് കണ്ടെത്തി

സ്വകാര്യ വിദേശ നാണയ വിനിമയ ഏജൻസിയായ തോമസ് കുക്കാണ് ക്രമക്കേട് നടത്തിയത്

ഇന്ത്യയിലെ ആദ്യ ഹജ്ജ് സംഘം മദ്ദീന സന്ദർശനം പൂർത്തി യാക്കി ഇന്ന് വൈകിട്ട് നാലോടെ മക്ക്യിലേക്ക് പോകും

ഇന്നും നാളെയുമായി

ഏഴ് വിമാനങ്ങളിലാണ് സംഘം യാത്ര തിരിക്കുക മാനദണ്ഡങ്ങൾ കാറ്റിൽപറത്തിയാണ് അമൃത് പദ്ധതി നടത്തിപ്പിന് സ്ഥകാര്യ കമ്പനിക്ക് കരാർ നല്കിയതെന്ന് വി ഡി സതീശൻ എം എൽ എ കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ശുചിത്വമിഷൻ എം പാനൽ നിയമങ്ങൾ കാറ്റിൽപറത്തിയെന്നും സ്ഥലം പ്പോലും കണ്ടെത്താതെ ഡി പി ആർ നല്കിയതിൽ ക്രമക്കേടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു

വിഷയത്തിൽ നിയമപരമായ എല്ലാ സാധ്യതകളും പരിശോധിക്കുമന്നും വിഡി സതീശൻ അറിയിച്ചു ലോകകപ്പ് ക്രിക്കറ്റിൽ മറ്റന്നാൾ ചരിത്ര ഫൈനൽ നിലവിലെ ചാമ്പൃന്മാരായ ഓസ്ട്രേലിയയുടെ കിരീടമോഹങ്ങൾ സെമിയിൽ തകർത്ത ഇംഗ്ലണ്ടും ഇന്ത്യയെ മുട്ടുകുത്തിച്ച ന്യൂസിലാന്റും തമ്മി ലാണ് കലാശപ്പോരാട്ടം

ഇതുവരെ ലോകകപ്പ് കിരീടമുയർത്താത്ത രണ്ട് ടീമുകളിൽ ആര് കപ്പ് നേടുമെന്ന കൌതുകത്തോടെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ലോഡ്സിൽ ഫൈനലിനെ വരവേൽക്കുന്നത് ഇന്നലെ ഓസ്ട്രേലിയയെ എട്ട് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് തോൽപ്പിച്ചത്

തിരുവനന്തപുരം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോഡ് എന്നീ എട്ടു ജില്ലകളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക

പ്രമുഖ നാടകനടൻ കാരന്തൂരിലെ എസ്ആർ ചന്ദ്രൻ അന്തരി ച്ചു

കെ ടി മുഹമ്മദിന്റെ നിരവധി നാടകങ്ങ ളിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ റേഡിയോ നാടകങ്ങൾ രചി ക്കുകയും ശബ്ദം നൽകൂകയും ചെയ്തിട്ടുണ്ട്

സംഭവത്തിൽ രണ്ട് പേരെ മാഹി പോലീസ് അറസ്റ്റ് ചെയ്തു അഴീയൂർ സ്വദേശികളായ ഫർസൽ ഷിനാസ് എന്നിവരാണ് അറസ്റ്റിയിലായത് മാഹിയിൽ വെച്ച് ഇവര് സഞ്ചരിച്ച വാഹനം അമിത വേഗത്തിലാണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് വിനോദിന് മർദനമേറ്റത് വ്യാജമദ്യവും ലഹരിമരുന്നുകളും കണ്ടെത്താൻ എക്സൈസ് വകുപ്പ് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി

പത്ത് കേസു കൾ രജിസ്റ്റർ ചെയ്തു സമാനമായ റെയ്ഡിൽ വയനാട്ടിൽ കഞ്ചാവും വാറ്റുപകരണ ങ്ങളും പിടികൂടി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു

ഇടുക്കിയിൽ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു

ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പാൻമ സാല പെട്ടിക്കടകളിൽ നിന്നും ഇവരുടെ താമസസ്ഥലങ്ങളിൽ നിന്നു മാണ് ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത് കോഴിക്കോട് സൌത്ത് ബീച്ച് റോഡിൽ ഒന്നര കിലോയിലേറെ കഞ്ചാവുമായി യുവാവ് പൊലീസ് പിടിയിലായി ചക്കുംകടവ് എരുഞ്ഞിക്കൽപറമ്പ് വി

ഹൌസിൽ വി

റജീസിനെയാണ് ഫറോക്ക് റെയിഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തെ പ്രിവിധ ജയിലുകളിലെ തടവുകാരിൽ നിന്ന് മൊബൈൽ ഫോണൂകൾ പിടിച്ചെടുത്ത സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ ഡിജിപി ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടു ജയിൽ മേധാവി ഋഷിരാജ്സിംഗിന്റെ കത്ത് പരിഗണിച്ചാണ് ഡിജി പിയുടെ തീരുമാനം ക്രൈംബ്രാഞ്ച് ഐജി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ലോക്കൽ പൊലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും സംയുക്ത സംഘമാണ് അന്വേഷണം നടത്തുക കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചു കൂത്തുപറമ്പ് കണ്ണൂർ റൂട്ടിൽ ഓടുന്ന ബസ്റ്റിലെ കണ്ടക്ടർക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്